രാജ്യത്തെ എല്ലാ ബാങ്കുകളും നാണയങ്ങളും ചെറിയ തുകയുടെ കറൻസി നോട്ടുകളും സ്വീകരിക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേ ശിച്ചു അന്തർ സംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ സമരം നാലാം ദിവസത്തേക്ക് കടന്നു

ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റിനെ തകർത്ത് പാകിസ്താൻ സെമി സാധ്യത നിലനിർത്തി ഇന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും

നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഉച്ച കോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ലോകനേതാക്കളുമായി അദ്ദേഹം ചർച്ചയും കൂടിക്കാഴ്ചയും നടത്തും

ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിൻ ബ്രിക്സ് നേതാക്കൾ തുടങ്ങിയവരുമായും ഉച്ചകോ ടിക്കിടെ നരേന്ദ്രമോദി ചർച്ച നടത്തും

രാജ്യത്തെ എല്ലാ ബാങ്കുകളും നാണയങ്ങളും ചെറിയ തുകയുടെ കറൻസി നോട്ടുകളും സ്വീകരിക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി ചില ബാങ്കുകളും മേഖലകളും നാണയങ്ങളും ചെറിയ തുക യുടെ നോട്ടുകളും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതിയിലാണ് ആർ ബി ഐ തീരുമാനം നാണയങ്ങളുടെ നിയമസാധുതയും മൂല്യവും ചോദ്യം ചെയ്യാനാവില്ലെന്നും അവ യഥേഷ്ടം കൈമാറ്റം ചെയ്യപ്പെടണ മെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

ഗൂഗിളും മാസ്റ്റർ വിസ കാർഡുകളും ആമസോണും ഉൾപ്പെടെ സ്ഥാപ നങ്ങളുടെ ഇടപാട് വിവരങ്ങൾ വിദേശത്ത് സൂക്ഷിക്കുന്നത് ഉചിതമ ല്ലെന്ന് റിസർവ് ബാങ്ക് വിലയിരുത്തി അന്തർ സംസ്ഥാന സ്ഥകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ സമരം നാലാം ദിവസത്തേക്ക് കടന്നു

എസ് ആർ ടി സി അധിക സർവ്വീസുകൾ ഏർപ്പെടുത്തിയതിനാൽ ബെംഗളൂരു ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് കാര്യ മായ യാത്രാക്ലേശമുണ്ടായില്ല കർണാടക ആർ ടി സിയും കൂടുതൽ സർവ്വീസുകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് ഇന്റർസ്റ്റേറ്റ് ബസ് ഓണേഴ്സ് അസോ സിയേഷൻ ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ട് പീരുമേട് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥരെക്കൂടി സ്ഥലംമാറ്റി

ഇന്ന് നെടുങ്കണ്ടത്ത് ഇടുക്കി ക്രൈംബ്രാഞ്ച് സംഭ വത്തിൽ തെളിവെടുപ്പ് നടത്തും വാഗമൺ കോലാഹലമേട് സ്വദേശി കുമാറാണ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്

കെട്ടിട നിർമാണചട്ടം ലംഘിച്ചതിന് ഒരുകോടി പതിനേഴ് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ആലപ്പുഴ നഗരസഭ ആവശ്യപ്പെട്ടിരു ന്നത്

പിഴ കുറച്ച് കെട്ടിടങ്ങൾക്ക് അംഗീകാരം നൽകാൻ റിപ്പോർട്ട് നൽകിയ കൊല്ലം നഗരകാര്യ റീജ്യണൽ ഡയറക്ടർക്കെതിരേ വിജി ലൻസ് അന്വേഷണത്തിനും നഗരസഭായോഗം ശുപാർശ ചെയ്തു

വോട്ടെണ്ണൽ നാളെ നടക്കും കേരള ലളിതകലാ അക്കാദമിയുടെ കഴിഞ്ഞവർഷത്തെ കാർട്ടൂൺ പുരസ്കാരം പുനർനിർണയിക്കാൻ പുതിയ ജൂറിയെ നിശ്ചയിച്ചേക്കും അക്കാദമി ജനറൽ കൌൺസിൽ യോഗമാണ് ഈ വിഷയത്തിൽ തീരു മാനമെടുക്കേണ്ടതെന്ന് സെക്രട്ടറി പൊന്ന്യം ചന്ദ്രൻ അറിയിച്ചു വിവാദ കാർട്ടൂണിന് പുരസ്കാരം നൽകിയതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നാളെ ഒരുമണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേ ഷനാണ് സമരത്തിന് ആഹ്വാനം നൽകിയത്

ബഹിഷ്കരിക്കും കുടിശ്ശിക വായ്പകൾക്ക് കടാശ്വാസം പരിഗണിക്കുന്നതിന് അപേക്ഷ നൽകേണ്ട തീയ്യതി ഒക്ടോബർ പത്ത് വരെ നീട്ടിയതായി സംസ്ഥാന കർഷക കടാശ്വാസ കമ്മിഷൻ അറിയിച്ചു

ജയത്തോടെ ഏഴ് പോയിന്റുമായി പാകിസ്താൻ പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തി ഇന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും ടൂർണമെന്റിൽനിന്നു പുറത്താകാതിരിക്കാൻ വിൻഡീസിന് ജയം അനിവാര്യമാണ് കോപ്പഅമേരിക്ക ഫുട്ബോളിൽ കാർട്ടർ പോരാട്ടങ്ങൾ നാളെ ആരം ഭിക്കും

വൈകിട്ട് ഒളിമ്പ്യൻ ഷൈനി വിൽസൺ മേള ഉദ്ഘാടനം ചെയ്യും

സമാപന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മുഖ്യാതിഥിയായി പങ്കെടുക്കും നിലവിൽ ചാമ്പ്യന്മാർ കണ്ണൂർ ജില്ലയാ ണ് ലൈംഗിക പീഡനക്കേസിൽ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുംബൈ ദിൻഡോഷി സെഷൻസ് കോടതിവിധി ഇന്നുണ്ടായേക്കും ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റ് വൈകില്ലെന്ന് മുംബൈ പോലീസ് അറിയിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ ഏഴ് മൊബൈൽ ഫോൺ കൂടി പിടിച്ചെടുത്തു ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് നടത്തിയ പരിശോധനയിലാണ് ഫോണുകൾ കണ്ടെത്തിയത്

ഞായറാഴ്ച വരെ പരിശോധന തുടരുമെന്ന് സുപ്രണ്ട് അറിയിച്ചു വടകരയിൽ സ്വതന്ത്ര സ്ഥാനാർഥിയായി മത്സ രിച്ച സി ഒ

നസീറിനെ ആക്രമിച്ച കേസിൽ കീഴടങ്ങിയ രണ്ട് പ്രതികളെ പോലീസ് മൂന്നുദിവസത്തേക്ക് കസ്റ്റഡിയിൽവാങ്ങി പ്രതികളെ ഒരാഴ്ച വിട്ടുനൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് മൂന്നു ദിവസമാക്കി ചുരുക്കി നസീറിനെ ആക്രമിക്കാൻവേണ്ടി പ്രതികൾക്ക് വാഹനം ഏർപ്പാടാക്കിയെന്നും ഒളിവിൽ താമസിക്കാൻ സഹായിച്ചുവെ ന്നുമാണ് പ്രതികൾക്കെതിരായ കുറ്റം പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയതിസ്ംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് യുവമോർച്ച ഇന്ന് കണ്ണൂർ എസ്

ഓഫീസിലേക്ക് മാർച്ച് നടത്തും രാവിലെ പഴയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിക്കും യൂത്ത് കോൺഗ്രസും ഇന്ന് ആന്തൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് ഇടുക്കി ചിന്നക്കനാലിൽ സി ഐ

നടത്തിവന്ന ഭൂസമരം അവ സാനിപ്പിച്ചു തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി നൽകാൻ ഒരു മാസത്തി നകം നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിനെത്തു ടർന്നാണ് സമരം പിൻവലിച്ചത് എന്നാൽ ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി നൽകണമെന്നു ആവശ്യവുമായി സമരം തുടരുമെന്ന് ആദ്യം പ്രക്ഷോഭം ആരംഭിച്ച സമരസമിതി അറിയിച്ചു തൃശൂർ കേരളവർമ്മ കോളേജിൽ അയ്യപ്പ വിഗ്രഹത്തെ അവഹേ ളിച്ച് പിപാദ പോസ്റ്റർ സ്ഥാപിച്ച എസ് എഫ്

പ്രവർത്തകർക്കെതിരേ കേസ്സെടുക്കാൻ തൃശൂർ സി

എം കോടതി ഉത്തരവിട്ടു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ്സെടുക്കാനാണ് നിർദ്ദേശം

ജെ

ജില്ലാ സെക്രട്ടറി അനീഷ് കുമാർ നൽകിയ പരാതിയിലാണ് നടപടി ചിന്നിച്ചിതറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒന്നിക്കേണ്ട സമ യമാണിതെന്ന് സി

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആല പ്പുഴയിൽ പറഞ്ഞു

ജെ

യുടെ വിഭജന രാഷ്ട്രീയത്തെ തടയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണം ആവശ്യമാണെന്നും കാനം അഭിപ്രായപ്പെട്ടു

എസ് എഫ് ചലോ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും ഇടത് ഗവൺമെന്റ് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്ന് കോഴിക്കോട്ട് എം

കുടിശ്ശിക യുടെ പേരിൽ കെ എസ് ഇ ബി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ ഫാക്ടറി യുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് പണികൾക്ക് കമ്പനിയിൽനിന്ന് മൂന്നിലൊന്ന് ഉത്പന്നങ്ങൾ വാങ്ങണമെന്ന നിബന്ധന പ്രാബലൃത്തിലാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ ജില്ലാ കളക്ടറായി എസ്

വി അനുപമ അവധിക്ക് അപേക്ഷ നൽകിയ സാഹചര്യത്തിലാണ് ഷാനവാ സിന്റെ നിയമനം കൊല്ലം ജില്ലയിൽ കൊതുകുകളുടെ ഉറവിട നശീകരണം ഊർജ്ജി തമാക്കി ജില്ലയിൽ കൊതുകുജന്യ പനി വ്യാപിക്കുന്ന സാഹചര്യത്തി ലാണ് നടപടി